അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാന്മന്ത്രിയും അഗാധ ദുഃഖം രേഖപ്പെടുത്തി

വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം രണ്ടു വൃദ്ഗ്ദ്ധ് സംഘത്തെ നിയോഗിച്ചു

കേരളത്തിൽ സമ്പർക്ക രോഗ വ്യാപനം വർധിക്കുന്നു

മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിശദാംശങ്ങളുമായി മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ടെലഫോണിൽ ബന്ധപ്പെട്ടാണ് രാഷ്ട്രപതി അനുശോചനം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ ബന്ധപ്പെട്ട പ്രധാനമന്ത്രി കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു സംസ്ഥാന സർക്കാരിന് വേണ്ട എല്ലാ സഹായവും നൽകാൻ അദ്ദേഹം വിമാനത്താവള അതോറിട്ടിക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി മന്ത്രിമാരായ അമിത് ഷാ ഹർഷവർദ്ധൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി

കേന്ദ്ര ആരോഗ്യ മന്ത്രി ഹർഷവർധൻ മന്ത്രി കെ

ശൈലജയുമായി ഫോണിൽ വിളിച്ചാണ് സഹായം വാഗ്ദാനം ചെയ്തത്

സ്ഥിതി അദ്ദേഹം നേരിട്ട് വിലയിരുത്തും മന്ത്രി എ

ഇന്നലെ വൈകുന്നേരംവരെ ക്രട്ടിത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്നു കണ്ടെടുത്തത്

രക്ഷാപ്രവർത്തനത്തിനും ദുരന്തത്തിനിരയായവർക്ക് ആശ്വാസമെത്തിക്കാനും സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു

അയ്യായിരത്തോളം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി രാധൻഗിരി ഡാം തുറന്നു വിട്ടതാണ് നദികളിൽ ജലനിരപ്പുയരാൻ കാരണം

ഇന്ത്യക്കും മറ്റ് വികസ്വര രാജ്യങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശ്യം

സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ശേഷിച്ച സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും അടുത്ത വർഷം മാർച്ചോടെ പദ്ധതിയിൽ അംഗമാകും